കേരളം ബൂത്തിലെത്താൻു മണിക്കൂറുകൾ മാത്രം ഒരുക്കങ്ങൾ പൂർണ്ണ്ടു ക്യന്ത്ത സുരക്ഷ

റഫേൽ ഇടപാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സുപ്രീംകോടതിയിൽ ഖേദം പ്രകടിപ്പിച്ചു

ശ്രീലങ്കയിൽ അടിയന്തിരാവസ്ഥ ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളെന്ന് ശ്രീലങ്ക അന്വേഷണത്തിന് വിദേശസഹായം തേടി

ഐ പി എല്ലിൽ ഇന്ന് രാജസ്ഥാൻ ഡൽഹി പോരാട്ടം

കോൺഗ്രസ്റ്റ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി ബിജെപി അദ്ധ്യക്ഷൻ അമിത് ഷാ സമാജ്സ്വാദ് പാർട്ടി നേതാവ് മുലായംസിങ് യാദവ് എന്നിവരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ കൂടുതൽ വിവരങ്ങളുമായി ്കൂവിത സുനു

മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നാലാം ഘട്ടതെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു

എ ഗവൺമെന്റ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിനാകെ ബാധകമായ ദേശീയ പൌരത്വ രജിസ്റ്റർ തയ്യാറാക്കുമ്ലെന്ന് ബി ജെ

പ്രസിഡന്റ് അമിത്ഷാ കൊൽക്കത്തായിൽ പറഞ്ഞൂ

ജെ

ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് സമയം വോട്ട് ചെയ്യാനെത്തുന്നവർ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖ കരുതേണ്ടതാണ്

ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് വയനാട്ടിലുമാണ്

പോളിങ് സുഗമമാക്കാനുള്ള സുരക്ഷ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

എല്ലാ ബൂത്തുകളിലും ഹരിതചട്ടം പാലിച്ചു കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി യിട്ടുണ്ട്

പ്ലാസ്റ്റിക്കും ഡിസ്പോസബിൾ വസ്തുക്കളും ബൂത്തുകളിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പി നോടനുബന്ധിച്ച് പൂർണ്ണമായും ഒഴിവാ ക്കണമെന്ന് കർശന നിർദ്ദേശമുണ്ട് പ്താസ്റ്റിക്കിൽ പൊതിഞ്ഞ് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യാതിരിക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്

സുപ്രീംകോടത്തി വിധി തെറ്റായരീതിയിൽ വ്യാഖ്യാനിച്ചതിന് ബ്ലീ ജെ

രാഹുലിന്റ പ്രസ്താവന അനുചിതമെന്ന് ്നേർത്ത സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടിരുന്നു

എതിരാളികൾ അത് ദുരുപയോഗം ചെയ്തതായും അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം പരമോന്നത കോടതി നാളെ പരിഗണിക്കും

രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി പൊതുപ്രവർത്തകർ തുടർച്ചയായി അസംബന്ധം പറയുന്നത് നിരാശാജനകമാണ് റഫേൽ വിഷയത്തിൽ കോൺഗ്രസ് കള്ളങ്ങളെ ആശ്രയിക്കുന്നതായും ശ്രീമതി സീതാരാമൻ ആരോപിച്ചു

രാഹുൽ ഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് ബി ജെ പി നേതാവ് ജി

നരസിംഹ റാവു ആവശ്യപ്പെട്ടു റഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രിയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കള്ളമായിരുന്നുവെന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലൂടെ ശ്രീ രാഹുൽ സമ്മതിച്ചിരിക്കുകയാണെന്നും ശ്രീ റാവു പറഞ്ഞു

പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയാണ് അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചത്

സംഭവത്തെ കുറിച്ച് സൂപ്രീംകോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു സ്ഫോടനങ്ങൾ നടത്തുന്നതിന് വിദേശസഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കും കൊളംബൊയിലെ തിരക്കേറിയ മാർക്കറ്റിൽ നിന്നും ഡിറ്റൊണേറ്ററുകളും കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്ത് ഇനിയും ഭീതി വിട്ടുമാറിയിട്ടില്ല ആക്രമികൾ കടൽമാർഗ്ഗം രക്ഷപ്പെടാനുള്ള സാധൃത കണക്കിലെടുത്ത് ഇന്തൃയും ജാഗ്രതയിലാണ്

ശ്രീലങ്കൻ ഗവൺമെൻുമായും അവിടുത്തെ ജനതയുമായും ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു

ഇൻഡോ പെസഫിക് മേഖല ഉൾപ്പെടെ ഇരുരാജ്യങ്ങൾക്കും പൊതു താത്പര്യമുള്ള പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി ന്യൂഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു

വരും മാസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾക്കുള്ള അജണ്ടയും ഇരുഭാഗങ്ങളും ചർച്ച ചെയ്തു

വാങ് ഈയെയും വിദേശകാര്യ സെക്രട്ടറി സന്ദർശിച്ചു

ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനില്ലെ ഭീകര സംഘടനയായ ജയ്ഷെ മുഹമമദ് നേതാപ്പ് മീസുദ് അസ്ഹറിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചൈനയ്ക്ക് ക്കൈമാറിയിട്ടുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു ലോക ഭീകരരുടെ പട്ടികയിൽ അസ്ഹറിനെ ഉൾപ്പെടുത്തുന്ന കാര്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ പരിഗണിക്കും ബീജിംഗിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ശ്രീ രവീഷ്കുമാർ

ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപ്പിറ്റൽസുമായി ഏറ്റുമുട്ടും രാത്രി എട്ടിന് ജയ്പൂരിലാണ് മത്സരം